മുഖ്യമന്ത്രിമാരുമായി കോവിഡ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു

സംസ്ഥാനത്ത് ക്ലസ്റ്ററുകളിൽ രോഗവൃാപനം കൂടുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജിയൻ

വികസിപ്പിച്ചു കോവിഡ് വാക്സിൻ ഉപയോഗം ആരംഭിച്ചു

കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ വിജയിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വിശദാംശങ്ങളുമായി സുരേഷ്

കോവ്വിഡ് രോഗബാധ മൂലം നിലവിൽ ചികിത്സയിലുള്ളവരുടെ രോഗമുക്തി നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ മഹാമാരിയെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നു നടത്തിയ ആശയവിനിമയത്തിൽ സംസ്ഥാനങ്ങൾ പരസ്പരം പങ്കുവച്ച അനുഭവങ്ങളിൽ നിന്ന് ധാരാളം കാരൃങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു

ബീഹാർ ഗുജറാത്ത് ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ഇക്കാരൃത്തിൽ ജാഗ്രത പുലർത്തണം കോവിഡിനെതിരായ പോരാട്ടത്തിൽ സമ്പർക്കപ്പട്ടിക തയ്യാറാക്കലും തീവ്രബാധിത മേഖലകളിലെ ജാഗ്രതയും പ്രധാനമാണ്

മരണനിരക്ക് രണ്ട് ശതമാനത്തിലൂർ താഴെയായി

അഞ്ച് കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു

ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലയിൽ ആറ് ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് രോഗവ്യാപനം തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയാണ് ആപ്പിന് ലഭിക്കുന്നത്

മോസ്കോയിലെ ഗമാലേയ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച വാക്സിന്റെ ആദ്യ ഡോസ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മകൾക്കാണ് നൽകിയത് വാക്സിൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ശക്തമായ പ്രതിരോധ ശേഷിയുണ്ടെന്നും പുടിൻ പറഞ്ഞു

വാക്സിൻ ലഭ്യത സംബന്ധിച്ച എല്ലാ വശങ്ങളും വിദഗ്ദ്ധ സമിതി പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഉപരാഷ്ട്രപതി രാജ്യസഭാ ചെയർമാൻ എന്നീ നില്കളിൽ നടത്തിയ പരിശ്രമങ്ങളും അതിന്റെ ഫലങ്ങളും സംബന്ധിച്ച പരമ്പരയിലെ മൂന്നാമത്തെ പതിപ്പാണ് ഇതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഉപരാഷ്ട്രപതി പറഞ്ഞു

ഇനിയും പന്ത്രണ്ട് പേരെയെങ്കിലും കണ്ടെത്താനുണ്ട് തിരച്ചിൽ നാളെയും തുടരും

ഗാണ്ടക്ക് കോസി നദികൾ കരകവിഞ്ഞു ദർഭംഗ മൂസാഫർപൂർ സരൺ ജില്ലകളിൽ സ്ഥിതി ഗുരുതരമാണ്

ടോൾ ഫ്രീ നമ്പർ ഡയൽ ചെയ്താണ് അദ്ദേഹം എസ്ബിഎം അക്കാദമി ആരംഭിച്ചത്

ഏഴ് മ്യൂസിയങ്ങൾ ന്യിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്

ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആഗോള വിപണിയിൽ മത്സരാധിഷ്ഠിതമായി നടത്തുന്നതിനുമുള്ള വിപണനം സാങ്കേതിക നവീകരണത്തിനും ഗവേഷണവും നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

നിക്ഷേപകരെയും പര്യവേക്ഷകരെയും ഖനിത്തൊഴിലാളികളെയും ഇന്ത്യൻ ഖനന മേഖല വാഗ്ദാനം ചെയ്യുന്ന വലിയ അവസരങ്ങങ്ങളിലേക്ക് ഒരു വെബിനാറിൽ സംസാരിക്കുന്നതിനിടെ ശ്രീ ജോഷി സ്വാഗതം ചെയ്തു

കോവിഡ് പരിശോധന പൂർത്തിയാക്കി സുരക്ഷ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി തൊഴിൽ വിസയിലാണ് ഇവർ യാത്ര തിരിച്ചത് ഒമാൻ സൌദി അറേബ്യ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഉടനെ ഉദ്യോഗാർത്ഥികൾ യാത്ര തിരിക്കും